ജമ്മുകശ്മീരും ലഡാക്കും സ്ന്ദ്ർശിക്കും അതിർത്തിയിലെ സുരക്ഷാ സ്ഥിതിഗതികൾ പില്യിരുത്തും

ലക്ഷത്തിലേക്ക് കോവിഡ് പ്രതിസന്ധിക്കിടയിൽ കൂട്ടികൾക്കുള്ള പ്രതിരോധ വാക്സിൻ മുടങ്ങരുതെന്ന് യൂണിസെഫും ലോകാരോ ഗൃ സംഘടനയും

സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ സഹകരണം വേണം ആരോഗൃ രംഗവും ജന്നങ്ങളും ഒരുപോലെ വെല്ലുവിളി നേരിടുന്ന സമയമാണ് ഇത് മനുഷ്യത്തപരമായ മനുഷ്യത്തിൽ അധിഷ്ഠി തമായ ആഗോളവത്ക്കരണത്തിന് ചുക്കാൻ പിടിക്കാൻ ഇന്ത്യക്കും യൂറോപ്യൻ യൂണിയനും സാധിക്കും പുനരുത്പാദന ഉൌർജ്ജ മേഖലയിൽ യൂറോപ്പിൽ നിന്ന് കൂടുതൽ നിക്ഷേപവും സാങ്കേതിക വിദ്യയും ക്ഷണിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും സ്വാഭാവിക പങ്കാളികളാണെന്നും പ്രധാന മന്ത്രി പറഞ്ഞു ഇന്ത്യ യൂറോപ്യൻ യൂണിന് നല്കുന്ന പ്രാധാന്യം വളരെ വലുതാണെന്നും ഇതിൽ നന്ദിയുണ്ടെന്നും യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കിൾ പറഞ്ഞു

കിഴക്കൻ ലഡാക്കിലെ സുരക്ഷാ സ്ഥിതിഗതികൾ ഇരുവരും വിലയിരുത്തും ഉത്തരമേഖലാ സൈനിക കമാൻഡർ അടക്കമുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും സന്ദർശ നത്തിൽ പങ്കെടുക്കും അതിർത്തിയിൽ ഇന്ത്യാ ചൈന സംഘർഷം ഉടലെടുത്ത ശേഷം രാജ്യരക്ഷാ മന്ത്രി നടത്തുന്ന ആദ്യ ലഡാക്ക് സന്ദർശന മാണിത് കിഴക്കൻ പിർപഞ്ചാലിലെ റോഹ്താങ് ചുരത്തിൽ നിർമ്മി ക്കുന്ന അടൽ ടണലും രാജ്യരക്ഷാമന്ത്രി സന്ദർശിക്കും

്അതിർത്തിയിലെ ഇന്ത്യ ചൈന സംഘർഷമുൾപ്പെടെയുള്ള പ്രവിഷയങ്ങളിൽ ഇന്ത്യൻ വിദേശ കാര്യമന്ത്രി എസ്

കഴിഞ്ഞ മൂന്നാ്ഴ്ച്ചയ്ക്കിടെ രോഗികളുടെ എണ്ണം കുതിച്ചുയർന്ന സാഹചര്യത്തിലാണ് ലോക്ഡൌൺ നടപ്പാക്കാൻ ബീഹാർ സർക്കാർ തീർുമാനിച്ചത്

പൊതുഗതാഗതം അനുവദി ച്ചിട്ടുണ്ടെങ്കിലും സ്വകാരൃ വാഹനങ്ങൾക്ക് അവശൃഘട്ടത്തിൽ മാത്രമേ അനുമതി നൽകൂ

രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാ ക്കാനാണ് തമിഴ്നാട് സർക്കാർ ശ്രമിക്കുന്നത്

പരമേശ്വരൻ

ഇന്നലെ ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്കാണ് റിപ്പോർട്ട് ചെയ്തത്

ജീവന്റെ വിലയുള്ള ജാഗ്രത എന്ന മുദാവാകൃം ഉയർത്തിയാണ് മൂന്നാംഘട്ട കൃാമ്പയിൻ ആരിൽ നിന്നും രോഗം പകരാമെന്ന ജാഗ്രതാ നിർദ്ദേശമാണ് ജനങ്ങൾക്ക് മൂന്നാം ഘട്ട ക്യാമ്പെയ്നിൽ നൽകാനുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

അതുകൊണ്ട് തന്നെ മുൻകരുതലുകൾക്ക് ജീവന്റെ വിലയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി

സമ്പർക്കത്തിലൂടെ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കാജനകം ഈ പശ്ചാത്തലത്തിൽ കാരൃവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും അനുബന്ധിച്ചുള്ള കോംപ്പക്സും കൺ വെൻഷൻ സെന്ററും കോവിഡ് ഫസ്റ്റ്ലൈൻ ചികിത്സാ കേന്ദ്രമാക്കും പൂന്തുറ സെന്റ് തോമസ് സ്കൂളും താല്ക്കാലിക കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ഉച്ചയ്ക്ക് രണ്ട് മണിക്കുള്ള കണക്ക് പരീക്ഷയ്ക്ക് അരമണിക്കൂർ മുമ്പെങ്കിലും ഹാളിലെത്തണം

വാക്സിൻ നൽകുന്നതിലൂടെ തടഞ്ഞുനിർത്തപ്പെട്ട അസുഖങ്ങൾ തിരികെ വരാതിരിക്കാൻ ഇത് അതൃന്താപേക്ഷിതമാണ്